തുല്യ പങ്കാളിത്തതോടെ സമഗ്രമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

വിജയകരം

സാമ്പത്തിക തട്ടിപ്പുക്കേസുമായി ബന്ധപ്പെട്ട് ഐ സി

സി ഐ ന് ബാങ്ക് മുൻ സി ഇ ഒപ്പെട്ട് കൊച്ചാറിന്റെ ഭർത്താവ് ദീപക് കൊച്ചാർ അറസ്റ്റിൽ

കേരളത്തിൽ ഇന്ന് നാല് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധൃത

ഇത് സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും കൂടുതൽ കരുത്ത് പകരുമെന്ന് അദ്ദേഹം പറഞ്ഞു സമ്പന്നമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് ശരിയായ പോഷകാഹാരം വളരെ പ്രധാനമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

ഇതിന്റെ ഭാഗമായി അങ്കണവാടികളിലും സർക്കാർ പ്രൈമറി സ്കൂളുകളിലും അടുക്കളുത്തോട്ടങ്ങൾ സ്ഥാപിക്കും പ്രാദേശികമായി ലഭ്യമായതും ് പോഷക സമൃദ്ധമായതുമായ പച്ചക്കറികൾ നുട്ടൂവള്ർത്തുകയാണ് ലക്ഷ്യം

ഗ്രൂപ്പ് ചെയർമാൻ എഴുതിയ രണ്ട് പുസ്തകങ്ങളും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും

ആർ ഡി ഒ വികസിപ്പിച്ച ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ എന്ന എസ്

വി വിജയകരമായി പരീക്ഷിച്ചാണ് ഇന്ത്യ ഈ നേട്ടം സ്വന്തമാക്കിയത്

ഡി ഒ തലവൻ സതീഷ് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ ഒഡിഷയിലെ ബാലോസോറിലാണ് ഇന്ത്യ പരീക്ഷണം പൂർത്തിയാക്കിയത് തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദൃകളിലെ വമ്പൻ കുതിച്ചുചാട്ടമാണിതെന്നാണ് വിലയിരുത്തൽ

ഡി

പരീക്ഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും അദ്ദേഹം അഭിനന്ദിച്ചു

സി ഐ സി ഐ ബാങ്ക് മുൻ സി ഇ ഒ ചന്ദ കൊച്ചാറിന്റെ ഭർത്താവ് ദ്ദീപ്രക് കൊച്ചാറിനെ ഇ

ഇതുവരെ മുപ്പത്തി രണ്ടര ലക്ഷത്തോളം പേരാണ് രോഗമുക്തരായത്

ആർ പരിശോധനകളുടെ നിരക്ക് സർക്കാർ വീണ്ടും കുറച്ചു

അടച്ചിടൽ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയതിനു ശേഷം ടെസ്റ്റ് കിറ്റ് ഉല്പാദന ചെലവ് കുറഞ്ഞതിനെ തുടർന്നാണ് പരിശോധനാ നിരക്ക് സർക്കാർ കുറച്ചത്

ജസ്റ്റിസ് അശോക് ഭൂഷന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്

ഊട്ടിയിലെ നിയന്ത്രണങ്ങൾ നാളെ മുതൽ നീക്കും

ആത്മനിർഭർ ഭാരതിന്റെ സുപ്രധാന ആശയം സ്വയം പര്യാപ്തതയാണ്

കോവിഡിന്റെ പശ്ചാത്തലവും സുരക്ഷാ പ്രശ്നങ്ങളും പരിഗണിച്ചാണ് കോടതിയുടെ തീരുമാനം

ദേശീയ വിദ്യാഭ്യാസ നയം ഏറ്റവും മികവുറ്റ രീതിയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കർമ്മസേന നിർദ്ദേശങ്ങൾ സമർപ്പിക്കും

ഇക്കാര്യത്തിൽ കേന്ദ്രസർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താനും പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചുചേർത്ത എം

സംസ്ഥാന സർക്കാരിന് മുഖ്യപങ്കാളിത്തമുള്ള കമ്പനിയെ വിമാനത്താവള നടത്തിപ്പ് ഏൽപ്പിക്കണമെന്നതാണ് ആവശ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

തീരുവ്നന്തപുരം കൊല്ലം ആലപ്പുഴ മലപ്പുറം

അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദം നിലവിൽ കർണാട്കു തീരത്തിനടുത്തായി മധ്യ കിഴക്കൻ അറബിക്കടലിൽ സ്ഥിതി പ്പെയ്യുകയാണ്

നാളെ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്

എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ കാർട്ടർ ഫൈനലിൽ ഇന്തോ കനേഡിയൻ ജോഡികളായ രോഹൻ ബൊപ്പണ്ണ ഡെനീസ് ഷാപോലോവ് സഖ്യത്തിന് പരാജയം ഡച്ച് റൊമാനിയൻ സഖ്യത്തോട് നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ഇന്തോ കനേഡിയൻ സഖ്യം പരാജയപ്പെട്ടത് വനിതാ സിംഗിൾസ് നാലാം റൌണ്ട് മത്സരങ്ങളിൽ സെറീന വില്യംസ് ഗ്രീസിന്റെ മറിയ സക്കാരിയേയും ജപ്പാൻ താരമായ നവോമി ഒസാക്ക എസ്റ്റോണിയൻ താരമായ അനെറ്റ് കൊന്റാവീറ്റിനേയും പരാജയപ്പെടുത്തി